പൊന്നാനിയിൽ ഹൌറ മോഡൽ തൂക്കുപാല നിർമ്മാണത്തിന് കിഫ്ബി അംഗീകാരം ഐപിഎൽ ക്രിക്കറ്റിലെ ആദ്യ ക്വാളിഫയറിൽ ഡൽഹി ക്യാപി റ്റൽസിന് വിജയം ള ൽ ൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആറാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാ രണം നാളെ അവസാനിക്കും

തൃശൂർ പൂരം ഉൾപ്പെടെ ഉത്സവങ്ങൾക്ക് മറ്റന്നാൾ മുതൽ ആന കളെ വിട്ടു നൽകില്ലെന്ന ആന ഉടമകളുടെ നിലപാടിൽ തർക്കം പരി ഹരിക്കാൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉടമകളുമായി തിരുവന ന്തപുരത്ത് ഇന്ന് ചർച്ച നടത്തും തെച്ചിക്കോട് രാമചന്ദ്രൻ എന്ന ആനയുടെ എഴുന്നള്ളിപ്പ് വിലക്കുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ആനയുടമകൾ എഴുന്നള്ളിപ്പിന് ആനകളെ വിട്ടുനൽകി ല്ലെന്ന നിലപാടെടുത്തത് തെച്ചിക്കോട് രാമചന്ദ്രനെ പൂര്ത്തിന് മുന്നോടിയായ ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് നാളെ ഹൈക്കോടതി പരി ഗണിക്കും ഒരു കണ്ണിന് കാഴ്ച്ചയില്ലാത്ത ആനയെ പൂരത്തിന് എഴു ന്നള്ളിക്കുന്നത് സുരക്ഷയെ ബാധിക്കുമെന്ന നിലപാട് വനംവകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്

എന്നാൽ മണ്ഡല ത്തിൽ മൊത്തം റീപോളിങ്ങ് നടത്തണമെന്നാവശ്യപ്പെട്ട് സിപിഐ എമ്മും കോൺഗ്രസും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അറി യിച്ചു പൊലീസുകാരുടെ പോസ്റ്റൽ ബാലറ്റ് തിരിമറി സംബന്ധിച്ച് സംസ്ഥാന പൊലീസ് മേധാവി നൽകിയ പ്രാഥമിക റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ അംഗീകരിച്ചു

അന്വേഷണം നടത്തിയ സമിതി അംഗങ്ങൾ ചീഫ് ജസ്റ്റിസിനെ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന തോന്നൽ ജനിപ്പിക്കുകയാണ്

ന്യൂഡൽഹിയിൽ നാനി പാൽകിവാല പ്രഭാഷണം നടത്തുകയായിരുന്നു അരുൺഷൂറി പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിലോല മേഖല അന്തിമമായി തീരു മാനിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയ ഹരിത ട്രിബ്യൂണൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നിർദേശം നൽകി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണം ആറു മാസത്തിനകം അന്തിമ വിജ്ഞാപനം തയാറാക്കണമെന്ന ട്രിബ്യൂണൽ നിർദേശം പാലിക്കുന്നില്ലെന്ന് ആരോപിച്ച് നൽകിയ ഹർജിയിലാണ് നടപടി സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് തിരുവന ന്തപുരത്ത് ചേരും തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിന് നാളെ മുതൽ ഓൺലൈൻ അപേക്ഷകൾ നൽകാമെന്ന് പൊതുവിദ്യാഭ്യാസ സെക്ര ട്ടറി എ

ജൂൺ മൂന്നിന് ക്ലാസുകൾ ആരംഭിക്കും കേരള തമിഴ്നാട് കർണാടക തീരങ്ങളിൽ ഇന്ന് വൈകീട്ട് അഞ്ചര മുതൽ നാളെ അർദ്ധ രാത്രി വരെ കടൽ പ്രക്ഷുബ്ധമാവാൻ സാധൃതയുണ്ടെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറി യിപ്പ് നൽകി ഒന്നര മുതൽ രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ തിരമാ ലയ്ക്കു സാധ്യതയുണ്ട്

എറണാകുളം ചൂർണിക്കരയിലെ നിലം നികത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഇടനിലക്കാരൻ അബൂവിന്റെ വീട്ടിൽ പൊലീസ് റെയ്ഡ് നടത്തി

അബു നൽകിയ രേഖ അനുസരിച്ചാണ് നിലം നികത്തിയതെന്നും അത് വ്യാജ മാണെന്ന് അറിയില്ലായിരുന്നെന്നും ഭൂവുടമ പറഞ്ഞു പൊന്നാനിയുടെ ടൂറിസം വികസനത്തിനും ഗതാഗതത്തിനും വഴിയൊരുക്കുന്ന ഹൌറ മോഡൽ തൂക്കുപാലം യാഥാർഥ്യത്തിലേക്ക് പദ്ധതിക്ക് കിഫ്ബിയുടെ അംഗീകാരം ലഭിച്ചു

തീരദേശ ഹൈവേയുടെ ഭാഗമായി പൊന്നാനിയെയും തിരൂർ പടിഞ്ഞാറെക്കരയെയും ബന്ധിപ്പിച്ചാണ് തൂക്കുപാലം നിർമ്മിക്കുന്നത് ഐപിഎൽ ക്രിക്കറ്റിലെ ആദ്യ കാളിഫയർ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം വിശാഖപ്പട്ടണത്ത് സൺറൈസേഴ്സ് ഹൈദ രാബാദിനെ അവർ രണ്ട് വിക്കറ്റിന് തോൽപ്പിച്ചു നാളെ രണ്ടാം കാളി ഫയറിൽ ഡൽഹി ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും രാത്രി ഏഴരക്കാണ് മത്സരം കൊച്ചിയിൽ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ആദ്യ സെമി യിൽ മറ്റന്നാൾ ഇന്ത്യൻ നേവി എഫ്സി കേരളയെ നേരിടും രണ്ടാം സെമിയിൽ ഞായറാഴ്ച്ച ഗോകുലം കേരള റിസർവ് ടീം കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമുമായി ഏറ്റുമുട്ടും ഹയർ സെക്കൻ്ററി പരീക്ഷയിൽ കോഴിക്കോട് ജില്ല ഏറ്റവും ഉയർന്ന വിജയ ശതമാനം നേടി

എല്ലാവരും ജയിക്കുകയും എട്ട് പേർ എല്ലാ വിഷയത്തിലും എ പ്തസ് നേടുകയും ചെയ്തു വയനാട് ജില്ലയിൽ കോളറ സ്ഥിരീകരിച്ചു

ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശു പത്രിയിൽ ചികിത്സയിലാണ് ഇവർക്കൊപ്പമുണ്ടായിരുന്നു ഒമ്പത് പേർ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്

വാളയാർ ടോൾപ്പാസയിലാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പരിശോധന നടത്തുന്നത് പാലക്കാട് ജില്ലയിലെ തമിഴ്നാട് അതിർത്തി പ്രദേശമായ ഗോവിന്ദാപുരത്തു നിന്നും തൃശൂരിലേക്ക് കെ എസ് ആർ ടി

കേരളത്തിലെ ഏക മുസ്തീം രാജവംശമായ അറയ്ക്കൽ രാജകു ടുംബത്തിന്റെ ഭരണാധികാരിയായി ആദിരാജ മറിയുമ്മയെന്ന ചെറിയ ബീകുഞ്ഞി ബീവി ചുമതലയേറ്റു

അമൃത രാജൃറാണി എക്സ്പ്രസുകൾ ഇന്നുമുതൽ രണ്ട് ട്രെയി നുകളായി സർവീസ് ആരംഭിക്കും ഷൊർണൂർ മുതൽ തിരുവനന്ത പുരം വരേയും തിരിച്ചും ഈ സർവീസുകൾ ഒരു ട്രെയിനായാണ് ഇതുവരെ സർവീസ് നടത്തിയിരുന്നത്

അമൃത എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് മധുരയിലേക്ക് ഷൊർണൂർ സ്റ്റേഷനിൽ കയറാതെയായിരിക്കും സർവീസ് നടത്തു ന്നത് രാജ്യറാണി എക്സ്പ്രസ് ഷൊർണൂരിലെത്തിയ ശേഷം നില മ്പൂരിലേക്ക് പോകും കരിപ്പൂർ വിമാനത്താവളത്തിലെ പഴയ അന്താരാഷ്ട്ര ആഗമന ഹാൾ ഹജ്ജ് തീർഥാടകരുടെ പുറപ്പെടലിനായി ഉപയോഗിക്കാൻ പിവിധ ഏജൻസികളുടെ യോഗം തീരുമാനിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനു ഇത്തവണ ഹജ്ജിന് പോകുന്ന തീർഥാടകർക്കായി കരിപ്പൂരിലും നെടുമ്പാശേരിയിലും എംബാർക്കേഷൻ പോയിന്റ് ഒരുക്കിയിട്ടുണ്ട് തീർഥാടകരുടെ ആദ്യ യാത്ര കരിപ്പൂർവഴിയാണ്

മയക്കുമരുന്ന് കേസിൽ ശ്രീലങ്കയിലും ഇന്തൃയിലും ശിക്ഷയനുഭ വിച്ച അന്താരാഷ്ട്ര കുറ്റവാളി കല്ലായി ഒഴിശേരിപ്പറമ്പ് അയിഷാസ് ഹൌസിലെ നജീബിനെയാണ് പൊലീസ് അറസ്റ്റുചെയ്തത് തമിഴ്നാ ട് കർണാടക ഭാഗങ്ങളിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് എത്തിക്കുന്ന തെന്ന് ചോദൃം ചെയ്യലിൽ സമ്മതിച്ചതായി പൊലീസ് അറിയിച്ചു അശ്വനി ഫിലിം സൊസൈറ്റിയുടെ രാജ്യാന്തര ചലച്ചിത്രോത്സവം മറ്റന്നാൾ കോഴിക്കോട്ട് ആരംഭിക്കും ചാവറ ഹാളിൽ വൈകീട്ട് അഞ്ചിന് ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാ ടനം ചെയ്യും അടൂരിന്റെ ഏറ്റവും പുതി സിനിമയായ സുഖാന്ത്യ മാണ് ഉദ്ഘാടന ചിത്രം

ചെറിയ പെരുന്നാൾ ജൂൺ നാലിനോ അഞ്ചിനോ ആവാൻ സാധ്യതയുണ്ടെന്നും ഇതുകൂടി കഴിഞ്ഞ ശേഷം സ്കൂൾ തുറക്കണമെന്നും കെ എ ടി എഫ് ഭാരവാഹികൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകി കാസർകോട് നീലേശ്വരത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയും സാമൂഹിക പ്രവർത്തകനുമായ സി

ഇന്നലെ രാത്രി മംഗലൂരുവിലെ സ്വകാരൃ ആശുപത്രിയിലായിരുന്നു അന്തൃം

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് വടകര മണ്ഡലങ്ങ ളിലെ പോസ്റ്റൽ ബാലറ്റുകൾ ഉടൻ പോസ്റ്റ് ഓഫീസുകൾ വഴി അയ ക്കണമെന്ന് ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു